വിക്ഷേപണം മാറ്റി പുതിയ വിക്ഷേപണ തീയതി ഐ എസ് ആർ ഒ

സ്കിൽ ഇന്ത്യി ്മിഷന്റെ നാലാം വാർഷികം ഇന്ന്

പുനർനിർമ്മാണത്തിനായി തിരുവനന്തപുരത്ത് ഇന്ന് വികസന പങ്കാളിത്ത സമ്മേളനം

സി

ഫൈനലിൽ ന്യൂസിലാന്റിനെ തോൽപ്പിച്ച് ഇംഗ്ലണ്ടിന് കിരീടം

ഫെഡറേഷന്റെ ജൂനിയർ ലോകകപ്പിൽ രണ്ട് സ്വർണമടക്കം ഇന്ത്യക്ക് ആറ് മെഡലുകൾ

സാങ്കേതിക തകരാറിനെ തുടർന്നാണ് വിക്ഷേപണം മാറ്റിയതെന്ന് ഐ

പുതു ക്കിയ വിക്ഷേപണ തീയതി പിന്നീട് അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

എസ്

റഷ്യയും യുഎസും ചൈനയും കഴിഞ്ഞാൽ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന നാലാമത്തെ രാജ്യമാകാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ

രാജിവച്ചില്ലെങ്കിൽ ഇന്ന് തന്നെ വിശ്വാസ വോട്ട് തേടണമെന്നും ആവശ്യമുന്നയിച്ചു കൂടുതൽ വിവരങ്ങളുമായി സുവർണ

ഡി

മാർ രാജിവച്ചു രണ്ട് സ്വതന്തർ ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിച്ചു ഇവർ ബി ജെ

യ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്ന് ശ്രീ

എൽ എ മാർ നൽകിയ ഹർജി സുപ്രീംകോടതി നാളെ കേൾക്കും

എ മാർ ഹർജി നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ അഞ്ച് കോൺഗ്രസ് എം എൽ എ മാർ കൂടി ഹർജി നൽകിയിട്ടുണ്ട് മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗിയാണ് വിമത എം എൽ എ

നിളെ വരെ എം

എ മാരുടെ വിഷയത്തിൽ തീരുമാന്ദ്രമുടുക്കരുതെന്ന് സുപ്രീംകോടതി വെള്ളിയാഴ്ച സ്പീക്കറോട് ആവശ്യപ്പെട്ടിരുന്നു

കോവളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് യോഗം നവ കേരള നിർമ്മാണ പദ്ധതി മുഖ്യമന്ത്രി വിശദീകരിക്കും റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായി ദേശീയ രാജ്യാന്തര ഏജൻസിക ളുടെ വായ്പകളും സാമ്പത്തിക സാങ്കേതിക സഹായങ്ങളും ലഭ്യമാക്കുകയാണ് ലക്ഷ്യം കേരള പുനർനിർമ്മാണത്തിന്റെ ഭാഗമായുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കും പുനർ നിർമ്മാണം സംബന്ധിച്ച സമഗ്ര ചർച്ചയും ഉണ്ടാവും

പരിക്കേറ്റവരുടെ എണ്ണം ഇനിയും കൂടാനാണ് സാധ്യത

ഭക്ഷണശാല പ്രവർത്തിച്ചിരുന്ന നാല് നില കെട്ടിടമാണ് തകർന്ന് വീണത് രക്ഷാപ്രവർത്തനം തുടരുന്നു ഉച്ചഭക്ഷണത്തിനെത്തിയ സൈനീകരും കുടുംബവുമാണ് അപകടത്തിനിരയായത് കനത്ത മഴയെ തുടർന്നാണ് കെട്ടിടം തകർന്നത് മുഖ്യമന്ത്രി ജയറാം താക്കൂർ രക്ഷാപ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തി അപകടം ഉണ്ടാകാനുള്ള കാരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

ജമ്മു ശ്രീനഗർ ദേശീയ പാത രാത്രിയും പകലും സി

എഫിന്റെ നിരീക്ഷണത്തിലാണ് മാത്രമല്ല തീർത്ഥാടകർക്ക് വഴി കാട്ടുന്നതിന് ഒരു സുരക്ഷാ പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട് വാഹനത്തെയോ തീർത്ഥാടകരെയോ കണ്ടുപിടിക്കാൻ കൃഷിയുന്ന ടാക്കിംഗ് ചിപ്പ് ആണ് തീർത്ഥാടകർക്ക് നൽകുന്നത്

കൂടുതൽ വിവരങ്ങളുമായി സുവർണ നാലാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് രാജ്യമെമ്പാടും സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രധാന ചടങ്ങ് ന്യൂഡൽഹിയിലാണ് നടക്കുന്നത്

കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ നരേന്ദ്രസിംഗ് തോമർ രവിശങ്കർ പ്രസാദ് രമേശ് പൊഖ്റിയാൽ നിഷാങ്ക് മഹേന്ദ്ര നാഥ് പാണ്ഡേ ആർ

ഇതിന്റെ ഭാഗമായി വർഷം ഒരു കോടിയോളം യുവജനങ്ങൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നുണ്ട്

ന്യൂസ്ഡെസ്ക് ആകാശവാണി

സ്മനിലയും സൂപ്പർ ഓവറും കടന്ന് ബൌണ്ടറികളുടെ എണ്ണത്തിലാണ് ഇംഗ്ലണ്ട് സൂപ്പർ ചാമ്പ്യൻമാരായത്

ടൂർണമെന്റിലെ താരമായി ന്യൂസിലാന്റ് ക്യാപ്ടൻ കെയ്ൻ വില്യംസ്ൺ തിരഞ്ഞെടുക്കപ്പെട്ടു

വിജയ്വീർ സിദ്ദു ഉൾപ്പെട്ട സംഘം ടീം ഇനത്തിൽ സ്വർണം നേടി

ഹർഷദ നിതാവെ ഉൾപ്പെട്ട സംഘത്തിന് ടീം ഇനത്തിൽ വെള്ളി ലഭിച്ചു മത്സരത്തിൽ ഇതുവരെ നാലു സ്വർണം അഞ്ചു വെള്ളി രണ്ടു വെങ്കലം ഉൾപ്പെടെ ്പതിനൊന്ന് മെഡലുകൾ നേടിയ ഇന്ത്യൻ ഷൂട്ടർമാർ മെഡൽ നിലയിൽ ഒന്നാം സ്ഥാനത്താണ്

ദേശീയ സംസ്ഥാന ദുരന്തനിവാരണ സേനകൾ ഒമ്പതിനായിരത്തോളം പേരെ ഇതിനകം മാറ്റിപ്പാർപ്പിച്ചു ബ്രഹ്മപുത്ര ഉൾപ്പെടെ നിരവധി നദികൾ അപകടകരമാവിധം കരകവിഞ്ഞൊഴുകുകയാണ് അഡീഷ്ണൽ ചീഫ് സെക്രട്ടറി കുമാർ സഞ്ജയ് കൃഷ്ണ സ്ഥിതിഗതികൾ വിലയിരുത്തി സംസ്ഥാനത്ത് ഭക്ഷ്യവസ്തുക്കൾക്ക് ക്ഷാമം നേരിടുന്നില്ലെന്ന് അദ്ദേഹം അറിയിച്ചു

സീതാമർഹി ഷിയോഹാർ മധുബാനി അറാറിയ കിഷൻഗഞ്ച് എന്നീ ജില്ലകളിലാണ് വെള്ളപ്പൊക്ക ദുരിതം ഏറെ ബാധിച്ചിരിക്കുന്നത്

പ്രധാന നദികളിലെയും ഉപനദികളിലെയും ജലനിരപ്പ് കുറയുന്നതായി സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു

വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ എന്നിവ മൂലമുണ്ടായ തടസ്സങ്ങൾ ഒഴിവാക്കി ഗതാഗതം പുനസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു തുടർച്ചയായുള്ള മഴ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്

എസ് എഫ്

സാംബ ജില്ലയിലെ രാംഗഡ് മേഖലയിലുള്ള ഇന്ത്യൻ പ്രദേശത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് സേന ഇയാളെ വെടിവച്ചു വീഴ്ത്തിയതെന്ന് പൊലീസ് പറഞ്ഞു

ബ്രേബക്ക് കൊല്ലം ബീച്ചിൽ ആരംഭിച്ച മറൈൻ അക്വേറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അവർ തുറമുഖ വകുപ്പിന് ഇതിന്റെ നിർമാണത്തിന് ആവശ്യമായ മാർഗനിർദേശങ്ങൾ നൽകിയിട്ടുണ്ട് പൂർണമായ പദ്ധതിയും തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു

അന്ന് കിഴക്കു പടിഞ്ഞാറൻ ദിശയിൽ അറബിക്കടലിൽ നിന്നും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കടൽ പ്രക്ഷുബ്ധമാകും കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ വ്യാഴാഴ്ച ഓറഞ്ച് അലെർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

മത്സരത്തിന് മുന്നോടിയായി ഇന്ന് രാവിലെ ചമ്പക്കുളം മഠത്തിൽ ക്ഷേത്രം മാപ്പളശ്ശേരി തറവാട് കല്ലൂർക്കാട് പള്ളി എന്നിവിടങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു